ഐ

ഓൺലൈൻ വിദ്യാഭ്യാസത്തിനും സാങ്കേതിക വിദ്യയ്ക്കും വിദ്യാഭ്യാസ നയത്തിൽ പ്രാധാന്യം നൽകുന്നതായും സ്വയംപ്രഭ ദീക്ഷാ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഭാവിയിൽ വികസിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സ്ഥാനാർഥി അടക്കം മൂന്നു പേർക്ക് മാത്രമാണ് നാമനിർദേശ പത്രിക സമർപ്പിക്കാനായി പ്രവേശനം അനുവദിക്കുക ബീഹാറിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടങ്ങളിലായാണ് നടക്കുക

കേന്ദ്രത്തിന്റെ പരിശോധന കണ്ടെത്തൽ ചികിത്സ നയം രോഗമുക്തി നിരക്ക് വർദ്ധിക്കാനും മരണ നിരക്ക് കുറയ്ക്കാനും സഹായകമായതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

സി എം ആർ ആറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണു

ഈ കേന്ദ്രസർക്കാരുമായി ആലോചിക്കാതെ കണ്ടെയിൻമെന്റ് മേഖലയ്ക്ക് പുറത്ത് പ്രാദേശിക ലോക്ഡൌൺ പ്രഖ്യാപിക്കരുതെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശമുണ്ട്

ചടങ്ങുകളിൽ നൂറിലധികം പേർ പങ്കെടുക്കണമോ എന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം ശാസ്ത്ര വിഷയങ്ങളിലെ ബിരുദാനന്തര ബിരുദ ഗവേഷണ വിദ്യാർഥികൾക്ക് അധികൃതരുടെ അനുമതിയോടെ ക്ലാസ്സുകളിൽ എത്തി പഠനം നടത്താം

നൽകിയിട്ടുളള നിയന്ത്രണങ്ങളോടെ വിമാനയാത്ര നിലവിൽ അനുവദിച്ചിട്ടുള്ള രാജ്യങ്ങൾക്കു പുറമേ ഭൂട്ടാൻ കെനിയ എന്നീ രാജൃങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ സിവിൽ വ്യോമയാന മന്ത്രാലയം തീരുമാനിച്ചു

ജൈവവൈവിധൃം സംബന്ധിച്ച യു

ഇന്തൃയുടെ സംസ്കാരം പ്രകൃതി സംരക്ഷണം മാത്രമല്ല പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനും പഠിപ്പിക്കുന്നതിനായി അദ്ദേഹം പറഞ്ഞു

പരീക്ഷണ വിക്ഷേപണത്തിലൂടെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ മറ്റൊരു നാഴികക്കല്ലു പിന്നിട്ടതായി പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ പ്രകാശ് ജാവദേക്കർ എന്നിവരും ഈ നേട്ടത്തിൽ അഭിനന്ദനം രേഖപ്പെടുത്തി

അടച്ചിടൽ കാരണം നികുതിദായകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ഇ ഇൻവോയ്സ് നൽകേണ്ട തീയതി മാർച്ചിൽ നിന്നും ഒക്ടോബർ ഒന്നിലേക്ക് നീട്ടുക ആയിരുന്നു

എൽ ക്രിക്കറ്റിൽ ഇന്ന് കിംഗ്സ് ഇലവൻ പഞ്ചാബ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

ബൃഹൻ മുംബൈ ട്രാൻസ്പോർട് നിലവിൽ മുംബ്ലൈയിൽ മൂവായിരത്തോളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്